രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിൽ വ്യാപൃതർ

ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന ജെയ്ഷെ ഇ മുഹമ്മദ് കൊടും ഭീകരൻ ഫയസ് അഹമ്മദ് ലോണിനെ ശ്രീനഗറിൽ നിന്നും ഡൽഹി പോലീസിന്റെ പ്രത്യേക വിഭാഗം അറസ്റ്റ് ചെയ്തു

ജി എസ് ടി വരുമാനത്തിൽ സർവ്വകാല റെക്കോർഡ്

രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണരംഗം സജ്ജീവമായി കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

എമിസാറ്റിന്റെ ചരിത്രപരമായ പരീക്ഷണത്തിൽ ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു കൊ ാണ് പ്രധാനമന്ത്രി വോട്ടർമാരെ അഭിസംബോധന ചെയ്തത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് എൻ സി പി സഖ്യം ജലസേചന പദ്ധതികളുടെ പേരുപറഞ്ഞ് കർഷകരെ കൊള്ളയടിക്കുകയായിരുന്നുവെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു ഉച്ചയ്ക്ക് ആന്ധ്രാപ്രദേശിൽ എത്തിയ പ്രധാനമന്ത്രി ഹൈദരാബ്ദ് എൽ ബി സ്റ്റേഡിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി തെലങ്കാനയിൽ പൊതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ബ്രിജെപിക്കെതിരെ ആശയപരമായ പോരാട്ടമാണ് കോൺഗ്രസ് പാർട്ടി നടത്തുന്നതെന്ന് ശ്രീ രാഹുൽഗാന്ധി പറഞ്ഞു

സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ മുലായം സിംഗ് യാദവ് ഉൾപ്പെടെ ഒട്ടേറെ പേർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

ഈ മണ്ഡലത്തിലെ എം എൽ എ യുടെ ശിക്ഷാവിധി കഴിഞ്ഞമാസം ഏഴിന് സെഷൻസ് കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളതിനാൽ മണ്ഡലത്തിൽ എം എൽ എ ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എങ്ങനെ തീരുമാനിക്കാനാകുമെന്ന് സുപ്രീംകോടതി ചോദിച്ചു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള കമ്മീഷന്റെ വിജ്ഞാപനം അസാധുവാക്കണമെന്ന് ആവ്യശ്യപ്പെട്ട് എം

ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗോഗോയ് അധ്യക്ഷനായ് ബ്രഞ്ച് തെരഞ്ഞെടുപ്പ് അധികൃതർക്ക് നോട്ടീസ് അയച്ചു

വടകര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർഥി കെ മുരളീധരനും മാവേലിക്കരയിൽ എൽ

എറണാകുളത്ത് യു

എഫ് സ്ഥാനാർഥി ഹൈബി ഈഡനും എൻ

എ സ്ഥാനാർഥി അൽഫോൻസ് കണ്ണന്താനവും തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർഥി ശശി തരൂരും ഇന്ന് പത്രിക സമർപ്പിച്ചവരാണ് കൊല്ലത്ത് യു

എഫ് സ്ഥാനാർഥി എൻ കെ പ്രേമചന്ദ്രൻ എൻ

എ സ്ഥാനാർഥി കെ വി സാബു തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർഥി ടി എൻ പ്രതാപൻ ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻആലത്തൂരിൽ രമ്യാ ഹരിദാസ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് കാസർകോട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർഥി രവീശ തന്ത്രി കു ാർ പൊന്നാനിയിൽ വി റ്റി രമ മലപ്പുറത്ത് വി ഉണ്ണികൃഷ്ണൻ എന്നിവരും ഇന്ന് പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു

എഐസിസിയുടെ സംഘട്ടനാ പുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ

അതിനിടെ വയനാട്ടിലേക്കുള്ള രാഹുലിന്റെ ആദ്യവരവ് ആഘോഷമാക്കാനുള്ള തയാറെടുപ്പിലാണു കോൺഗ്രസ് പ്രവർത്തകർ

രാഹുൽഗാന്ധി സ്വന്തം മണ്ഡലമായ ഉത്തർപ്രദേശിലെ അമേഠിക്ക് പുറമേ കേരളത്തിലെ വയനാട് ലോക്സഭ മണ്ഡലത്തിലും മത്സരിക്കുമെന്ന് കോൺഗ്രസ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു

ഡൽഹി ഹൈക്കോടതിയിൽ ജസ്റ്റീസ്മാരായ രാജേന്ദ്രമേനോൻ എ

പരാതിക്കാരാന് കേന്ദ്ര സെൻസർ ബോർഡിനെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ സമീപിക്കാമെന്ന് കോടതി ചൂ ിക്കാട്ടി ബോംബെ ഹൈക്കോടതിയിൽ ജസ്റ്റീസ്മാരായ നരേഷ് പാട്ടീൽ എൻ എം

ചിത്രം പ്രദർശിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂ ിക്കാട്ടി പി

നരേന്ദ്രമോദി എന്ന സിനിമയുടെ നിർമ്മാതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം തന്നെ നോട്ടീസ് നൽകിയിട്ടു എന്ന് ചൂ ിക്കാട്ടിയാണ് ബോംബെ ഹൈക്കോടതി പൊതുതാല്പര്യ ഹർജി തള്ളിയത്

ഇന്ത്യയുടെ തന്ത്രപരമായ ബഹിരാകാശ ശാസ്ത്ര പുരോഗതിയാണ് വിക്ഷേപണ വിജയം സൂചിപ്പിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അടുത്തകാലത്ത് ഇന്തൃ കൈവരിച്ച അഭൂതപൂർവ്വമായ നേട്ടങ്ങൾ ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കുമെന്ന് ഉപരാഷ്ട്രപതി വൃക്തമാക്കി ശാസ്ത്രജ്ഞരുടെ വിജയത്തിൽ രാജൃത്തിന് അഭിമാനമു ന്നും ഉപരാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു

ഡോക്ടർമാരുടെ നിർദ്ദേശം പാലിച്ച് മാത്രമേ തീർത്ഥാടകർ യാത്രയിൽ പങ്കെടുക്കാവുയെന്ന് അമർനാഥ് ക്ഷേത്രബോർഡ് മുന്നറിയിപ്പ് നൽകി

സന്ദർശന വേളയിൽ അമേരിക്കൻ ഉന്നത്ര ഐസനിക ഉദ്യോഗസ്ഥരുമായി സൈനിക സഹക്കരുണ്ട് സംബന്ധിച്ച് ജനറൽ ചർച്ചകൾ നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ളി സൈനിക രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കരസേനാ മേധാവി യു എസ് സ്ന്ദർശിക്കുന്നത്

മൊഹാലിയിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം

ടൂർണമെന്റിൽ ഇതുവരെ മൂന്നുകളികൾ വീതം കളിച്ച ഇരു ടീമുകളും ര വിജയങ്ങളും ഓരോ തോൽവികളുമായിട്ടാണ് ഇന്ന് കളിക്കളത്തിലിറങ്ങുന്നത്

ചാമ്പ്യൻ ഷിപ്പിലെ അവസാനദിവസം ഇന്ത്യയുടെ യാഷ് വർദ്ധൻ ശ്രേയ അഗർവാൾ എന്നിവർ മൂന്ന് സ്വർണമെഡലുകൾ വീതം നേടി

അസ്സമിൽ തടവിൽ കഴിയുന്ന വിദേശികളെ സംബന്ധിച്ച കേസിന്റെ അപ്പീൽ വാദം കേൾക്കവേയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ചൻ ഗൊഗോയ് ഉൾപ്പെട്ട ബഞ്ച് ചീഫ് സെക്രട്ടറിയോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്

മാർച്ച് മാസത്തിൽ മാത്രം ഒരുലക്ഷത്തി ആറ് കോടി രൂപയാണ് ജിഎസ്ടി ഇനത്തിൽ ലഭിച്ചത്

ജിഎസ്ടി നടപ്പിലാക്കിയതുമുതൽ റെക്കോർഡ് നേട്ടമാണ് മാർച്ച് മാസത്തിലേത്